സാന്നിധൃം ദേശീയ കുറ്റാനേഷണ ഏജൻസി റിപ്പോർട്ട് കേരള പൊലീസിന് ക്രൈമാറി

പരസ്യ പ്രചാരണം അവസ്മാനീക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രം

മലയാളി ജവാന് വീരമൃത്യു ഇന്ന് ലോക വിദ്യാർത്ഥി ദിനം

കൂടത്തായി കേസിൽ റോജോയുടെ മൊഴി രേഖപ്പെടുത്തി

ഡൽഹിയിൽ എൻ ഐ എ യോഗത്തിൽ പങ്കെടുക്കുന്ന കേരള പൊലീസ് മേധാവി മടങ്ങിയെത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും കർണാടകം തമിഴ്നാട് മഹാരാഷ്ട്ര ബിഹാർ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതായി എൻ ഐ

കൃഷ്ണഗിരി മലനിരകളിലും തമിഴ്നാട് കർണാടക അതിർത്തികളിലും ഇവർ അത്യുഗ്രസ്ഫോടന ശേഷിയുള്ള ഐ

കോന്നിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വിവിധ പൊതുയോഗത്തിൽ സംസാരിക്കും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് മഞ്ചേശ്വരത്ത് പ്രചാരണം നടത്തും യുഡിഎഫിനു വേണ്ടി കെ മുരളീധരൻ എം എം ഹസൻ എന്നിവരും എൻഡിഎ നേതാവ് പി സി തോമസും വട്ടിയൂർക്കാവിൽ ഇന്ന് പ്രചാരണം നടത്തും

ജവാൻ വീരമൃത്യു കശ്മീരിൽ പട്രോളിങ്ങിനിടെ ഉണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലം അഞ്ചൽ സ്വദേശിയായ ജവാൻ വീരമൃത്യു വരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു ഇടയം ആലുംമൂട്ടിൽ കിഴക്കതിൽ വീട്ടിൽ പ്രഹ്ളാദൻ ശ്രീകല ദമ്പതികളുടെ മകൻ അഭിജിത്താണ് വീരമൃത്യു വരിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ബാരാമുള്ളയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റതായാണ് ബന്ധുക്കൾക്ക് ലഭിച്ച ആദ്യ വിവരം മിലിറ്ററി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നിയമനടപടികൾ പൂർത്തിയായ ശേഷം നാട്ടിലെത്തിക്കും

ന്യൂ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവികൾ എന്നിവർ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

രാവിലെ വടകര എസ്

അറസ്റ്റിലായ ജോളി മാത്യു പ്രജികുമാർ എന്നിവരുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും ഇന്ന് കൂടത്തായി വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും മുഖ്യപ്രതി ജോളി വ്യാജ വിൽപ്പത്രം ഉപയോഗിച്ച് വീടും പുരയിടവും സ്വന്തമാക്കിയെന്ന പരാതിയെ തുടർന്നാണ് മൊഴിയെടുക്കുന്നത്

ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സഹകരണ വ്യാപാര മേളയിലൂടെയാണ് ഇതിന് അവസരം ലഭിച്ചത്

അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സഹകരണസംഘം തെലങ്കാന മാർക്കറ്റിങ് ഫെഡറേഷനുകളുമായി ധാരണാപത്രം ഒപ്പിട്ടു രാജസ്ഥാൻ ഹിമാചൽപ്രദേശ് ഡൽഹി ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെയും ഓസ്ട്രേലിയ ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ വ്യാപാരികളുമായും ചർച്ചകൾ നടന്നു സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിപണനത്തിനു കേരള മാർക്കറ്റിങ് ഫെഡറേഷനും ഗുജറാത്ത് മാർക്കറ്റിങ് ഫെഡറേഷനും തമ്മിൽ ധാരണയായി

അടുത്ത മണ്ഡലകാലത്തേക്കുള്ള നിയുക്ത മേൽശാന്തിമാർ മറ്റന്നാൾ ശബരിമലയിലെത്തും എരുമേലി കോളിഫോം ബാക്ടീരിയയുടെ സാന്നിദ്ധ്യം കൂടുതലായി കണ്ടെത്തിയ സാഹചര്യത്തിൽ എരുമേലിയിലെ തോടുകൾ ഉടൻ ശുചീകരിക്കണമെന്ന് ദേശ്ീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശം എരുമേലി പഞ്ചായത്ത് അധികൃതരോട് മലിനീകരണ നിയന്ത്രണ ബോർഡ് വഴിയാണ് നിർദ്ദേശം ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായി തോടുകൾ വൃത്തിയാക്കാനാണ് നിർദ്ദേശം

തിരുനാൾ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ തിരുനാൾ പാലാ രാമപുരം ഫൊറോന പള്ളിയിൽ നാളെ ആചരിക്കും മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ മാർ മാത്യുവാണിയക്കിഴക്കേൽ ഡോ

അഡ്മിറൽ അരുൺ പ്രകാശ് ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് ഇന്ന് പ്രഭാഷണം നടത്തും ഇതോടൊപ്പം ഇന്ത്യൻ സമുദ്രതീരത്തേക്ക് പ്രത്യേക ശ്രദ്ധപതിപ്പിക്കുന്നതിനെ കുറിച്ചും ആദ്ദേഹം സംസാരിക്കും

സിപ്പിഐഎം മുൻ ലോക്കൽ സെക്രട്ടറിയും ക്ഷീരോൽപാദക സംഘർ പ്രസിഡന്റുമായ അപ്പപാറ ശംഘുമൂല സാരംഗിൽ കെ

അപകടം കോഴിക്കോട് ചെറുവറ്റ പുഴയിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു

അമ്പലവയൽ ആണ്ടൂർ ചീനപ്പുല്ല് വെട്ടിക്കുന്നേൽ റെജി നിഷ ദമ്പതികളുടെ മകൻ ആൽബിന്റെ മൃതദേഹം ഇന്നലെ കണ്ടെടുത്തു

മഴ രണ്ടു ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം

കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാളെ ക്കൊല്ലം പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പലയിടത്തും ഇടിയോടുകൂടിയ മഴക്കും സാധ്യതയുണ്ട്